രാഷ്ട്രപതി രംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പടെ ആയിരങ്ങൾ യോഗദിനാചരണത്തിൽ പങ്കുചേർന്നു

രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പടെ നിരവധി പ്രമുഖർ രാജ്യത്ത് വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച യോഗ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി സുവർണ

ആരോഗ്യമുള്ള ശരീരത്തിനും മനഃസ്ഥിരതയ്ക്കും ഒരുമയുടെ സന്ദേശം പകരാനും യോഗയ്ക്ക് കഴിയുന്നുവെന്നും ഇന്നത്തെ മാറിവരുന്ന സാഹചര്യത്തിൽ ഒഴിവാക്കാനാകാത്ത ദിനചര്യയായി യോഗയെ പകർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രപതി ഭവനിൽ നടന്ന യോഗ പരിപാടിയിൽ ശ്രീ

മാനവികതയ്ക്ക് ഇന്ത്യ നല്കിയ സമ്മാനമാണ് യോഗയെന്നും ആരോഗൃമുള്ള ജീവിതത്തിനും മനസും ശരീരവും തമ്മിലുള്ള തൂലനാവസ്ഥ നിലനിർത്താനും യോഗയ്ക്ക് കഴിയുമെന്നും രാഷ്ട്രപതി പറഞ്ഞു ചെങ്കോട്ടയിൽ നടന്ന യോഗ പരിപാടിയിൽ ഉപരാഷ്ട്രപതി എം

രാജ്യതലസ്ഥാനത്ത് രാജ്പഥിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് പ്രകാശ് ജാവ്ദേക്കർ പ്രഹളാത് സിംഗ് പട്ടേൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ ഗോവ മുഖ്യമന്ത്രി ഡോ

എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശത്ത് പലയിടങ്ങളിലും യോഗദിനം ആചരിച്ചു ന്യൂയോർക്കിൽ യു എൻ ജനറൽ അസംബ്ളിഹാളിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം നിരവധിപേർ അന്താരാഷ്ട്ര യോഗദിനത്തിൽ പങ്കാളികളായി

പി പിൻവലിച്ച യു എസ് നടപടി ഇന്ത്യയെ ബാധിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അന്താരാഷ്ട്ര വ്യാപാര അവസ്ഥ കൈകാര്യം ചെയ്യാൻ ഇന്ത്യ പര്യാപ്തമാണെന്നും രാജ്യസഭയിൽ ചോദ്യത്തിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞു കയറ്റുമതി ഉൽപന്നങ്ങൾ കൊണ്ട് മികവു പുലർത്തുന്നതാണ് ഇന്ത്യൻ വ്യവസായ രംഗമെന്നും അതിനാൽ വിദേശവ്യാപാര മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധൃതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കഴിഞ്ഞ ആഗസ്റ്റിൽ അകാലിദൾ എം പി നരേഷ് ഗുജ്റാൾ സഭയിൽ കൊണ്ടുവന്ന സ്വകാരൃ ബില്ലാണ് ഇത് പാർലമെന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലൂടെ കാര്യക്ഷമതയിലുണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ ഫലപ്രദമായ ഒരു സമ്പ്രദായം കൊണ്ടു വരാൻ ഉദ്ദ്യേശിച്ചുള്ളതാണ് ബിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതെന്ന് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്കു മറുപടിയായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു

ജെ പി പാർലമെന്റ്ംഗങ്ങൾ തങ്ങളുടെ ജില്ലകളിൽ കുട്ടികളുടെ അതിതീവ്ര പരിചരിണ് വിഭാഗങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാന്ദ് റോയ് അറിയിച്ചു ബീഹാറിൽ കുട്ടികളിൽ അതിഗുരുതരമായ മസ്തിഷ്ക രോഗ ബാധിച്ചത് കണക്കിലെടുത്താണ് നടപടി

പിമാരുടെ പ്രാദേശിക വികസന പദ്ധതിയ്ക്ക് കീഴിൽ ഓരോ എം

സമസ്തി പൂരിലെ സദർ ആശുപത്രിയിൽ ഐ

അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയായ ഐ

ഐ യിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലേക്ക് ചലച്ചിത്രങ്ങൾ തെരഞ്ഞെടുക്കാറുണ്ട്

ഓസ്കാർ ടൊറന്റോ ബസാൻ ബെർലിൻ തുടങ്ങി വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇന്തൃൻ ചലച്ചിത്രങ്ങൾക്ക് കേന്ദ്രമന്ത്രാലയം സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെന്നും ശ്രീ ജാവദേക്കർ അറിയിച്ചു

ജെപിയുടെ പ്രതിനിധി സംഘം നാളെ പശ്ചിമബംഗാളിലെ സംഘർഷ ബാധിത പ്രദേശമായ ഭാത്പാര സന്ദർശിക്കും പാർട്ടി എം പിമാരായ എസ്

അലുവാലിയ സത്യപാൽ സിങ് വി

റാം എന്നിവർ സംഘത്തിലുണ്ടാകും

തീപിടിച്ചതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ലെന്ന് വടക്കൻ സുമാത്രയുടെ ദുരന്ത വിഭാഗം തലവൻ മാധ്യമങ്ങളോട് പറഞ്ഞു

അപകടത്തിൽപ്പെട്ട പലർക്കും തിരിച്ചറിയാനാകാത്തവിധം പൊള്ളലേറ്റിറ്റുണ്ട് മോശമായ സുരക്ഷാ ക്രമീകരണങ്ങളാൽ ഇന്തോനേഷ്യയിൽ തീപിടിത്തം സാധാരണമാണ്

സുരക്ഷയ്ക്കാവശ്യമായ എല്ലാ മുൻകരുതലുമെടുക്കുണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ അടുത്തിടെയായി വിദേശികൾക്കും പ്രവാസികൾക്കും നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നല്കിയത് രാത്രി തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് യാത്രചെയ്യരുതെന്നും വിലപിടിപ്പുള്ള വസ്തുകൾ കയ്യിൽ കരുതരുതെന്നും പറഞ്ഞിട്ടുണ്ട് സഹായങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാം

ഡെൽഹി ഗവൺമെന്റിന്റെ ആരോഗ്യ പദ്ധതിയുമായി കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരത് പരിപാടി യോജിപ്പിക്കാനാകുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ശ്രീ

ഗവൺമെന്റ് സ്കൂളും ക്ലീനിക്കും സന്ദർശിക്കാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായും ശ്രീ

ഊർജ്ജസുരക്ഷ സാമ്പത്തിക സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയമാകുമെന്ന് ശ്രീ സുരേഷ് പ്രഭു ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സുരക്ഷ ഡിജിറ്റൽ സമ്പദ് വൃവസ്ഥ് എന്നിവയും ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു

എസ് ടി രജിസ്ട്രേഷനുള്ള നിയമാവലി ജി എസ്

രജിസ്ട്രേഷന് ആധാർ ഉപയോഗിക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി റവന്യൂ സെക്രട്ടറി അജയ് ഭുഷൺ പാണ്ടേ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാര്യം നേരത്തെ ജി എസ്

ഇലക്ട്രോണിക് ഇൻവോയിസിംഗ് സംവിധാനം ഇ ടിക്കറ്റിംഗ് എന്നിവ കൊണ്ടുവരുന്നതിനും ജി എസ്

എസ്